പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആകാശവാണിയിലെ മനസ്സ് പറയുന്നത്പരിപാടിയിലൂടെ വൈകുന്നേരം ആറ് മണിക്ക് ജനങ്ങളോട് ചിന്തകൾ പങ്കുവയ്ക്കും

കൊറോണ വൈറസ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പ്രതിരോധ നടപടികൾ വിലയിരുത്താൻ ഏഴ് കേന്ദ്ര സംഘം സംസ്ഥാനങ്ങളിലും വിമാനത്താവളങ്ങളിലും സന്ദർശനം നടത്തും

ന്യൂഡൽഹി യിലെ രാജ്പഥിൽ നടക്കുന്ന പ്രധാന ചടങ്ങിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും ബ്രസീൽ പ്രസിഡന്റ് ജെയിർ മെസ്സയസ് ബോൾസനാരോയാണ് ഇത്തവണത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യാതിഥി

ജമ്മു കാശ്മീർ ഇതാദൃമായി കേന്ദ്ര ഭൂര്ണ്ട് പ്രദേശമെന്ന നിലയിൽ പരേഡിൽ അണി ചേരുകയാണ്

ദേശീയിൽ ക്യുദ്ധ സ്മാരകത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ സന്ദർശനത്തോടെ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്കമാകും അമർ ജവാൻ ജ്യോതിയിലെത്തി രക്തസാക്ഷികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്ന പതിവ് മാറ്റിവച്ചാണ് ഇത്തവണ പ്രധാനമന്ത്രി ദേശീയ യുദ്ധ സ്മാരകത്തിലെത്തുന്നത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ട് അഭിവാദ്യം സ്വീകരിക്കുന്നതോടെ പ്രൌഢമായ റിപ്പബ്ലിക് ദിന പരേഡിന് തുടക്ക മാകും വൻ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഡൽഹിയിലും പരിസരത്തും ഏർപ്പെടുത്തിയിട്ടുള്ളത്

പ്രധാന ചടങ്ങ് നടക്കുന്ന രാജ്പഥിൽ സിസിടിവി കൃാമറ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുൻ കേന്ദ്രമന്ത്രിമാരായ ജോർജ്ജ് ഫെർണാണ്ടസ് സുഷമ സ്വരാജ് അരുൺ ജെയ്റ്റ്ലി എന്നിവർക്ക് മരണാനന്തരമായി പത്മവിഭൂഷൺ നൽകുന്നു പേജാവർ മഠാധിപതിയായിരുന്ന വിശ്വേശ്വതീർത്ഥ സ്വാമിജികൾക്കും പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായി സമ്മാനിക്കപ്പെടുകയാണ് മൌറീഷ്യസ് മുൻ പ്രധാനമന്ത്രി അനിരുദ്ധ് ജുഗ്നൌദ് ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ ചന്തുലാൽ മിശ്ര ബോക്സ്സിങ് താരം എം സി

ഗോവ മുൻ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ നിയമജ്ഞൻ എൻ

വിഖ്യാത എഴുത്തുകാരൻ മനോജ് ദാസ്ക്ക് ബാഡ്മിന്റൺ താരം പി

സിന്ധു വ്യവസായി ആനന്ദ് മഹിച്ച്രൻ എന്നിവരും പത്മഭൂഷണ് അർഹത നേടിയിട്ടുണ്ട് ഫുട്ബോൾ പ്രതാരം ഓയ്നെം ബെംബെം ദേവി സിനിമ സംവിധായകൻ കരൺ ജോഹർ നടി കങ്കണ റണൌത് എന്നിവർക്കാണ് പത്മശ്രീ പുരസ്കാരം

ഓരോ കുട്ടിക്കും യുവാക്കൾക്കും പ്പിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്താൻ ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ടെന്ന് രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ജമ്മു കശ്മീർ ലഡാക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപുകൾ എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും സമഗ്രവികസനം ഉറപ്പാക്കാൻ ഗവൺമെന്റ് നിരന്തരമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഐ

ഇന്ത്യ കായികരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ടെന്നു പറഞ്ഞ രാഷ്ട്രപതി ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിന് ആശംസ നേർന്നു

നീതി സ്വാതന്ത്രൃം സമത്വം സാഹോദരൃം തുടങ്ങിയ ജനാധിപത്യത്തിന്റെ കേന്ദ്രതത്വങ്ങളോട് പുതിയ തലമുറ ചേർന്ന് നിൽക്കുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇതിനു ശേഷം മാ്ർച്ച് പാസ്റ്റ് നടക്കും

കരസേന വായൂസ്പേന ്അതിർത്തി രക്ഷാസേന പോലീസ് അർദ്ധ സൈനിക വിഭാഗം കൂതിർപോലീസ് എൻ സി സി സ്കൌട്ട്സ് എന്നിവർ പരേഡിൽ പങ്കെട്ടുക്കും വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കും

ആകാശവാണി യുടെയും ദൂരദശന്റെയും എല്ലാ ശൃംഖലകളിലും ന്യൂസ് ഓൺ എയർ വെബ്സൈറ്റിലും മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും

ഹിന്ദി പ്രക്ഷേപണത്തിന് തൊട്ടുപിന്നാലെ ആകാശവാണിയിൽ പ്രാദേശിക ഭാഷകളിൽ പരിപാടി പ്രക്ഷേപണം ചെയ്യും രാത്രി എട്ടിന് ഇത് പുനഃപ്രക്ഷേപണവും ചെയ്യുന്നുണ്ട്

കേന്ദ്ര ആരോഗൃമന്ത്രി ഡോ ഹർഷവർദ്ധന്റെ ദ്യന്തൃത്വത്തിൽ ഡൽഹിയിൽ ചേർന്ന യോഗത്തിലാണ് പ്രതിരോധ ് നൂട്ടപ്ടികൾ വിലയിരുത്താനുള്ള തീരുമാനമെടുത്ത്

കാർട്ടർ ഫൈനലിൽ മെക്സിക്കോയുടെ സീസർ സലാസറിനെ പരാജയപ്പെടുത്തിയാണ് സൌരവ് ഘോഷാൽ സെമിയി ലെത്തിയത് ഈജിപ്ഷ്യൻ താരം ഒമർ മൊസാദുമായാണ് സൌരവിന്റെ അടുത്ത മത്സരം

ആഗോള പ്രാദേശിക വിഷയങ്ങളിൽ ആശയ വിനിമയം നടത്തിയ നേതാക്കൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ചും സംഭാഷണം നടത്തി